ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിലാണ് ഇരുനേതാ ക്കളും ഉഭയകക്ഷി മേഖലാ വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നത് വൃാപാരം നിക്ഷേപം പ്രതിരോധം സുരക്ഷ ഭീകരതയ്ക്കെ തിരായ പോരാട്ടം ഊർജ്ജസുരക്ഷ ഇൻഡോ പെസിഫിക്ക് മേഖലയിലെ സ്ഥിതി തുടങ്ങിയവ ചർച്ചാവിഷ യമാകും ഇന്തൃയും അമേരിക്കയും ഉഭയകക്ഷി കരാറുകളിലും ഒപ്പുവയ്ക്കും ഇവയിലേറെയും പ്രതിരോധ ഊർജ്ജ മേഖലയിലാണ് അത്യാധുനിക ഹെലികോപ്റ്ററുകളും മറ്റു ഉപകരണങ്ങളും കൈമാറുന്നതിന് മുന്നൂറ് കോടി ഡോളറിന്റെ കരാർ ചർച്ചയിൽ ഒപ്പുവെയ്ക്കും രാഷ്ട്രപതിഭവനിൽ രാവിലെ ട്രംപിനും പ്രഥമ വനിത മെലാനിയക്കും ആചാരപരമായ വരവേൽപ്പ് നൽകി രാഷ്ട്ര പതി രാംനാഥ് കോവിന്ദും ഭാര്യ സവിതാ കോവിന്ദും പ്രധാന മന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് അതിഥികളെ സ്വീകരിച്ചു പിന്നീട് മഹാത്മാഗാന്ധി സമാധി സ്ഥലമായ രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് അവർ ആദരാഞ്ജലി അർപ്പിച്ചു

വൈകിട്ട് ട്രംപ് രാഷ്ട്രപതിഭവനിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായി കൂടിക്കാഴ്ച നടത്തും ട്രംപിനും സംഘാംഗങ്ങൾക്കും രാഷ്ട്രപതി അത്താഴവിരുന്ന് നൽകും രണ്ട് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ട്രംപും കുടുംബാംഗ ങ്ങളും അമേരിക്കയിലേക്ക് തിരിച്ചുപോകും അമേരിക്കൻ പ്രഥമവനിത മെലാനിയ ട്രംപ് തെക്കൻ ഡൽഹിയിലെ മോത്തിബാഗ് സർവോദയ സ്കൂൾ സന്ദർശി ച്ചു വിദ്യാർത്ഥികളുമായി അവർ സംവദിച്ചു

ഒരു പൊലീസ് ഹെഡ്കോൺസ്റ്റബിളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു ഡൽഹി അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതി കൾ വിലയിരുത്താൻ ആഭ്യന്തര മന്ത്രി അമിത്ഷാ അടിയന്തര ഉന്നതതലയോഗം വിളിച്ചു

മുഖ്യ മന്ത്രി അരവിന്ദ് കെജ്രിവാളും ലെഫ്റ്റനന്റ് ഗവർണർ അനിൽബൈ ജലും പങ്കെടുക്കും ഇന്നും ഡൽഹിയിലെ ചിലയിടങ്ങളിൽ പുതിയ സംഘർഷ മുണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നു വാഹനങ്ങൾക്കും കട കൾക്കും നേരെ കനത്ത കല്ലേറുണ്ടായി

ഏറ്റുമുട്ടലിൽ നിന്ന് പിന്മാറണമെന്നും പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ എല്ലാവരും മുന്നോ ട്ടുവരണമെന്നും കെജ്രിവാൾ യോഗത്തിൽ അഭ്യർത്ഥിച്ചു പരി ക്കേറ്റവർക്ക് മികച്ച ചികിത്സയും സൌകര്യങ്ങളും നൽകണ മെന്ന് അദ്ദേഹം ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകി

ഇന്നലെ മുതൽ സംഘർഷ മേഖലയിൽ കേന്ദ്രസേനയെ വിന്യസിച്ചിരുന്നു

മാർച്ച് ആറിന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും

തെര ഞ്ഞെടുപ്പ് പൂർത്തിയായി ഒരു മണിക്കൂറിനകം വോട്ടെണ്ണൽ തുടങ്ങും എൻ സി പി നേതാവ് ശരത്പവാർ കേന്ദ്രമന്ത്രി രാമദാസ് അതാവലെ കോൺഗ്രസ് നേതാക്കളായ മോത്തിലാൽ വോറ ദിഗ്വിജയ്സിംഗ് മുൻകേന്ദ്രമന്ത്രി വിജയ്ഗോയൽ തുടങ്ങിയവ രെല്ലാം ഏപ്രിലിൽ കാലാവധി പൂർത്തിയാക്കുന്നവരാണ് മഹാരാഷ്ട്രയിൽ നിന്ന് ഏഴ് സീറ്റുകളിലും തമിഴ്നാട്ടിൽ നിന്ന് ആറ് സീറ്റുകളിലും തെരഞ്ഞെടുപ്പ് നടക്കും

മൂന്ന് വർഷ കാലാവധിയോടു കൂടിയ കമ്മീ ഷൻ അധ്യക്ഷനെയും അംഗങ്ങളെയും വൈകാതെ തീരുമാ നിക്കും

ഇതനുസരിച്ച് ടോഡി ബോർഡ് നില വിൽ വരുന്നതു വരെയോ മൂന്ന് വർഷം വരെയോ കള്ള് ഷാപ്പു കൾ വിൽപ്പന നടത്തും ഈ സാമ്പത്തിക വർഷത്തെ ലൈസൻസികൾക്ക് വിൽപ്പനയിൽ മുൻഗണന നൽകും കള്ള് ഷാപ്പിന്റെ ആവശ്യത്തിലേക്ക് ചെത്തുന്ന കള്ളിന്റെ അളവ് ദിനംപ്രതി ഒന്നര ലിറ്ററിൽ നിന്ന് രണ്ട് ലിറ്ററാക്കി വർദ്ധി പ്പിക്കും ഇത് സംബന്ധിച്ച് പഠനം നടത്തിയിലളിതാംബിക കമ്മറ്റി അളവ് വർദ്ധിപ്പിക്കണമെന്ന് ശുപാർശ ചെയ്തിരുന്നു കള്ള് ഷാപ്പുകളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുന്നത് നിയമവിധേയമാക്കും നിലവിൽ കള്ള് ്ഷാപ്പുകൾ പ്രവർത്തി ക്കുന്ന കെട്ടിടങ്ങൾക്ക് ദൂരപരിധി ബാധകമാക്കില്ല ഇത്തര ത്തിൽ നിലവിലെ കള്ള് ഷാപ്പുകളെ സംരക്ഷിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു മദൃഷാപ്പുകളിലെയും ബാറുകളിലെയും ലൈസൻസ് ഫീ വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്

ഡിസ്റ്റിലറി ആന്റ് വെയർഹൌസ് വിഭാഗത്തിൽ നാലിനങ്ങളുടെ ഫീസ് രണ്ട് ലക്ഷത്തിൽ നിന്ന് നാല് ലക്ഷം രൂപയാകും ബ്രൂവറി ഫീസും ഇരട്ടിക്കും ക്ലബുകളുടെ ഭാരവാഹികൾ മാറു മ്പോൾ ഫീസ് ഈടാക്കുന്നത് ഒഴിവാക്കും ഭാരവാഹികൾ മാറു മ്പോൾ രണ്ട് ലക്ഷം രൂപ ഫീ ഈടാക്കുന്നത് നിലനിൽക്കി ല്ലെന്ന് ഹൈക്കോടതി വിധിച്ച സാഹചര്യത്തിലാണ് തീരുമാ നം സംസ്ഥാനത്തിനു പുറത്തെ ഡിസ്റ്റിലറികൾ സംസ്ഥാനത്തെ ഡിസ്റ്റിലറികളിൽ കരാർ വ്യവസ്ഥയിൽ മദ്യം ഉത്പാദിപ്പിക്കു മ്പോൾ ഒരു ഡിസ്റ്റിലറിക്ക് രണ്ട് ലക്ഷം രൂപ നിരക്കിൽ ഫീ ഈടാക്കും അബ്കാരി തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ നിയമനങ്ങൾ പി എസ് സിയ്ക്കു വിടാനും മന്ത്രി സഭ തീരുമാനിച്ചു

നാളെ രാവിലെ ക്ഷീരസം ഗമവും കേരളത്തിലെ ആനന്ദ് മാതൃകാ പ്രസ്ഥാനത്തിന്റെ വാർഷികാഘോഷവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാ ടനം ചെയ്യും ക്ഷീരവികസനവകുപ്പിന്റെയും ക്ഷീരമേഖലയിലെ വിവിധ ഏജൻസികളുടെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്

കപ്പലിൽ കൊറോണ ബാധിക്കാത്തവരെ ഇന്ത്യയിലെത്തിക്കാൻ ചാർട്ടേർഡ് വിമാനം ഏർപ്പെടുത്തിയതായി ജപ്പാനിലെ ഇന്ത്യൻ എംബസി ട്വിറ്ററിൽ അറിയിച്ചു

ഈ മാസം മൂന്നിനാണ് ടോക്കിയോക്കടുത്ത യൊക്കോഹാമ തുറമുഖത്ത് കപ്പലടുത്തത്

പാകിസ്ഥാൻ സിവിൽ സർവീസ് പരീക്ഷയിലെ ആറ് ചോദൃങ്ങൾ കെ എ എസ് പരീക്ഷയിൽ ആവർത്തിച്ചുവെന്നായിരുന്നു പി ടി തോമ സിന്റെ ആരോപണം

ബെങ്കലൂരുവിലെ സതേൺ സർക്കിൾ റെയിൽവെ സുരക്ഷാ കമ്മീഷണറാണ് പരിശോധന നടത്തുന്നത് ഹരിപ്പാട് അമ്പലപ്പുഴ ഇരട്ടപ്പാത പരിശോധനയുമായി ബന്ധപ്പെട്ട് സ്പീഡ് ട്രയൽ ഇന്ന് തുട ങ്ങ പാളത്തിന് സമീപം താമസിക്കുന്നവർ റെയിൽപ്പാത മുറിച്ച് കടക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് റെയിൽവേ അധികൃതർ അറി യിച്ചു

അതേസമയം ജോസഫ് വിഭാഗം നേതാക്കൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായി വിഷയത്തിൽ ചർച്ച നട ത്തി

ഒന്നാംഘട്ട വികസന പ്രവർത്തനങ്ങളുടെ ഉദ് ഘാടനം വൈകിട്ട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിക്കും കിഴക്കെകോട്ട മുതൽ കിള്ളിപ്പാലം വരെ പൈതൃകത്തെരുവും ആര്യശാല ജംഗ്ഷന് പുതിയ മുഖഛായയും പൈതൃക വികസന പദ്ധതി പ്രകാരം സൃഷ്ടിക്കും ആദിവാസി ജനവിഭാഗങ്ങളുടെ പരാതികൾ കൃത്യമായി വനിതാ കമ്മീഷന്റ് മുമ്പിൽ എത്തിക്കാൻ അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾക്ക് കഴിയണമെന്ന് വനിതാ കമ്മീഷൻ ചെയർ പേഴ്സൺ എം സി ജോസഫൈൻ പറഞ്ഞു വയനാട് കളക്ട്രേറ്റിൽ നടന്ന വനിതാ കമ്മീഷൻ മെഗാ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ കുടുംബശ്രീ ട്രൈബൽ പ്രേരക്മാർ അംഗൻവാടി പ്രവർത്തകർ ആശാവർക്കർ തുടങ്ങിയവർ വനിതകളുടെ പരാതി പരിഹാരത്തിന് കൂടുതൽ ശ്രദ്ധിക്കണമെന്നും അവർ പറഞ്ഞു

കുട്ടികളിൽ വിളർച്ച തടയുന്നതിനും രോഗ പ്രതിരോധശേഷിയും പഠനശേഷിയും വർദ്ധിപ്പിക്കുന്നതിനും വിരവിമുക്തമാക്കുന്നതിന് ആൽബൻഡസോൾ ഗുളിക എല്ലാ കുട്ടികളും കഴിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അഭ്യർത്ഥിച്ചു ഐ എസ് ആർ ഓ യുടെ നേതൃത്വത്തിൽ വിക്രം സാരാഭായി ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ലക്ഷദ്വീപിൽ രണ്ട് ദിവസത്തെ ഔദ്യോഗിക പരിപാടികൾ സംഘടിപ്പിച്ചു കവരത്തിയിൽ അഡ്മിനിസ്ട്രേറ്റർ ദിനേശ്വർ ശർമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രദർശനം റോക്കറ്റ് വിക്ഷേപണ ഡെമോ വിദ്യാത്ഥികൾക്ക് വിഷയവുമായി ബന്ധപെട്ട ക്വിസ്സ് മത്സരങ്ങൾ പ്രസംഗ ചിത്രരചന മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു

സുമേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു